കർണ്ണാടകയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീംകോടതി നാളെ വിധി പറയും

വികസന പ്പ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ എം പിമാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

തപാൽ വകുപ്പിലെ നിയമനങ്ങൾക്കുള്ള മത്സര പരീക്ഷ റദ്ദാക്കി പരീക്ഷ പ്രാദേശിക ഭാഷകളിൽ നടത്തുമെന്ന് ഗവൺമെന്റ്

സിന്ധു നയിക്കും

കൂടുതൽ വിവരങ്ങളുമായി ദീപു

എൽ എമാർ നൽകിയ് ഹർജിയും വിമതർക്കെതിരെ സ്പീക്കർ സമർപ്പിച്ച ഹർജിയിലുമാണ് ഇന്ന് കോടതി വാദം കേട്ടത് കോടതി നേരത്തെ പുറപ്പെടുവിച്ച ഉത്തരവിന്റെ ഭേദഗതി ആവശ്യപ്പെട്ടാണ് കർണാടക സ്പീക്കർ കെ

എന്നാൽ സ്പീക്കർ പക്ഷപാതപരമായി പെരുമാറുന്നു എന്നാരോപിച്ചാണ് വിമത എം എൽ

സ്പീക്കർക്കു വേണ്ടി മുതിർന്ന അഭിഭാഷകനായ എ

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബഞ്ചാണ് കേസ് പരിഗണിച്ചത് പ്രമുഖ അഭിഭാഷകൻ മുകൾ റോത്തഗിയാണ് വിമത എം എൽ എമാർക്ക് വേണ്ടി ഹാജരായത് രാജിയിൽ തീരുമാനം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്ന സ്പീക്കറുടെ നടപടിയ്ക്കെതിരെയായിരുന്നു വിമതരുടെ വാദം സ്പീക്കറുടെ അധികാര പരിധി ഉൾപ്പെടെ കർണാടക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വിഷയങ്ങളും കോടതിയെ പരിഗണിക്കുന്നുണ്ട്

എൽ എ മാരാണ് കോടതിയെ സമീപിച്ചത്

ബി നാഗരാജ് അടക്കം അഞ്ച് പേർകൂടി പിന്നീട് ഹർജി നൽകി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

അമ്പതോളം പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് സൂചന തകർന്നുവീണ കെട്ടിടത്തിനു സമീപമുള്ള താമസക്കാരെ മാറ്റിപ്പാർപ്പിച്ചതായി മഹാരാഷ്ട്ര നഗരവികസന മന്ത്രി രാധാകൃഷ്ണ വൈഖി പാട്ടീൽ അറിയിച്ചു

ജെ പി എം

കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ പ്രചാരണം നടത്താനും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു പാർലമെന്റ് ലൈബ്രറി മന്ദിരത്തിൽ പാർട്ടി എം

ജനങ്ങളോടും ഉദ്യോഗസ്ഥരോടും ഒപ്പമിരുന്ന് അവരവരുടെ മണ്ഡലങ്ങളിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് എം പിമാരോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതായി പാർല്മെൻ്റ്റികാര്യ മന്ത്രി പ്രഹ്ളാദ് ജോഷി മാധ്യങ്ങളോട് ഷ്ക്ക്തി് മന്ത്രിമാർ സഭയിൽ ഹാജരാകാത്തതിൽ പ്രധാനമ്യന്തി ആശങ്ക അറിയിച്ചതായും ശ്രീ

അവർപ്പർുടെ മേഖയിൽ നടപ്പാക്കാനുദ്ദേശിക്കുന്നു ഒരു പുതിയ ആശയം ആസൂത്രണം ചെയ്യണമെന്നും യോഗത്തിൽ പ്രധാനമന്ത്രി ബി ജെ പി എം പിമാരോട് ആവശ്യപ്പെട്ടു

ഡൽഹി പോലീസിന്റെ പ്രത്യേക വിഭാഗമാണ് ബഷീർ അഹമ്മദ് എന്ന ശ്രീനഗർ സ്വദേശിയെ അറസ്റ്റ് ചെയ്തത് ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പോലീസ് രണ്ട് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു

ജെ

നിലവിൽ യോഗി ആദിത്യനാഥ് മന്ത്രിസഭയിൽ അംഗമാണ് ശ്രീ

മഹാരാഷ്ട്രാ മന്ത്രിസഭയിലെ അംഗമായ ചന്ദ്രകാത് പട്ടേലിനെ പാർട്ടിയുടെ മഹാരാഷ്ട്രാ സംസ്ഥാന ബി ജെ

മംഗൾ പ്രഭാത് ലോധ പാർട്ടിയുടെ മുംബൈ ഘടകത്തിന്റെ പുതിയ അധ്യക്ഷനാകുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു

ഒരു പ്പുക്തി ഒരു പദവി എന്ന പാർട്ടി തത്വമനുസരിച്ചാണ് തീരുമാ്ന്നുക്കു്ന്ന് പാർട്ടി അറിയിച്ചു

ജെ

പാർട്ടി ജനറൽ സെക്രട്ടറി ഭൂപേന്ദർ യാദവിന്റെ സാന്നിധ്യത്തിൽ ശ്രീ

സമാജ്വാദി പാർട്ടിയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും ശ്രീ

മുൻ പ്രധാനമന്ത്രി ചന്ദ്ര ശേഖറിന്റെ മകനാണ് നീരജ് ശേഖർ

ഇവയടക്കം നിരവധി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം നൽകി

തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടിരിക്കുകയാണ്

കാസിരംഗ നാഷണൽ പ്പാർക്കിലെ ഭൂരിഭാഗം മേഖലയും വെള്ളപ്പൊക്കത്തിലായത്തോട്ടെ മൃഗങ്ങൾ ഉയർന്ന പ്രദേശത്തേക്ക് നീങ്ങാൻ തുടങ്ങി മുഖ്യുമുന്തി സർബാനന്ദ സോണോവാൾ ദുരിത മേഖലകളിൽ സന്ദർശന്ം നടത്തി

ആവശ്യമായ എല്ലാ മുൻകരുതലും എടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അസം മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചു സംസ്ഥാനത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തു

മിസോറാം മേഘാലയ അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും കനത്ത മഴ തുടരുകയാണ്

പ്രധാന നദികളെല്ലാം അപായനിലയും കവിഞ്ഞൊഴുകുകയാണ്

എ ഡി എം കെ ഡി എം കെ കക്ഷികളുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഇതിനെതിരായി രാജ്യസഭയിൽ പ്രതിഷേധം നടത്തിയതിനെത്തുടർന്നാണ് നടപടി

മത്സര പരീക്ഷ തമിഴ് ഉൾപ്പെടെയുള്ള് പ്രെങ്ങേശിക ഭാഷകളിൽ നടത്തുമെന്ന് പിന്നീട് കേന്ദ്രമന്ത്രി രവീശങ്കർ പ്രസാദ് രാജ്യസഭയിൽ പ്രഖ്യാപിച്ചും എല്ലാ ്പ്രാദേശിക ഭാഷകളോടും എൻ

എ ഗവൺമെന്റ് ആദ്രം പുലർത്തുന്നതായി കേന്ദ്രമന്ത്രി എടുത്തു പറഞ്ഞു

ഐ

എം കെ ഡി എം കെ കോൺഗ്രസ്ടി എം സി ഇടതുപക്ഷ കക്ഷികൾ മുദ്രാവാക്യം മുഴക്കി സഭയുടെ നടത്തളത്തിലിറങ്ങുകയും സഭാനടപടികൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു മത്സര പരീക്ഷ റദ്ദാക്കാനുളള ഗവൺമെന്റ് തീരുമാനത്തെ പ്രതിപക്ഷം സ്വാഗതം ചെയ്തു

ഈ മാസം അഞ്ച് വരെയുള്ള കണക്കാണിത് ഒരു റിപ്പോർട്ട്

രാജ്യത്തെ എല്ലാ കർഷകർക്കും പെൻഷൻ നൽകാൻ ഗവൺമെന്റ് തീരുമാനിച്ചതായും തോമർ പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഗ്രാമപഞ്ചായത്ത് തലത്തിലെ തൊഴിലുകളുടെ ചിത്രങ്ങൾ അടങ്ങിയ തെളിവുകൾ ശേഖരിക്കുന്നതിനും ആവശ്യമെങ്കിൽ ഉപഭോക്താക്കൾക്ക് അവ നൽകുന്നതിനും ഇതിലൂടെ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു

ചീഫ് ജസ്റ്റിസ് ഡി

പട്ടേൽ ജസ്റ്റിസ് സി ഹരി ശങ്കർ എന്നിവരടങ്ങിയ ബഞ്ചാണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിനും ഡൽഹി ഗവൺമെന്റിനും നോട്ടീസയച്ചത്

അഞ്ചാം സീഡായ സിന്ധു തന്റെ ആദ്യ റൌണ്ട് മത്സരത്തിൽ നാളെ ജപ്പാന്റെ അയ ഒഹാരിയുമായി ഏറ്റുമുട്ടും സൈനാ നെഗ്വാൾ മത്സരിക്കുന്നില്ല അതേസമയം കിടംമ്പി ശ്രീകാന്ത് സായി പ്രണീത് എച്ച്

പ്രണോയി തുടങ്ങിയവർ സിംഗ്ൾസ് വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മത്സരത്തിന് ഇറങ്ങും ശ്രീകാന്ത് ജപ്പാന്റെ കെന്റാ നിഷി മോട്ടോവുമായുട്ടു നീഹ്ലായി പ്രണീത് ഗോംങ്കോഗ് താരം വോങ് വിങ് കീയ്യിമ്മായും പ്രണോയ് ചൈനയുടെ ഷിയൂകീയുമായും ആദ്യ റൌണ്ടിൽ മാറ്റുരയ്ക്കും

ബിശ്വ ഭൂഷൺ ഹരിചന്ദ്രനാണ് പുതിയ ആന്ധ്രാപ്രദേശ് ഗവർണർ എന്ന് രാഷ്ട്രപതി ഭവൻ അറിയിച്ചു